പുലർച്ചെ അഞ്ചരയോടെയാണ് കരിങ്കൽ മതിൽ വീടുകൾക്കു മേൽ ഇടിഞ്ഞുവീണത് കൂടുതൽ പേർ അവശിഷ്ടങ്ങൾക്കിട യിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്ന സംശയത്തിൽ തിരച്ചിൽ തുടരു കയാണ് ഇന്നലെ തമിഴ്നാട്ടിലെ മഴക്കെടുതിയിൽ അഞ്ചു പേർ മരിച്ചിരുന്നു ചെന്നൈയിലെ പല താഴ്ന്ന പ്രദേശങ്ങളും വെള്ള ത്തിനടിയിലാണ് തീരദേശ മേഖലയിൽ മഴ് ഇപ്പോഴും തുടരുക യാണ്

അടിയന്തര സാഹചര്യം വിലയിരുത്താൻ മുഖ്യമന്ത്രി എടപ്പാടി പളനി സ്വാമി രാവിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി ദുരന്തനിവാരണ സേനയുടെ കൂടുതൽ സഹായം ഉറപ്പുവരുത്താൻ കേന്ദ്ര ഗവൺമെന്റിനോട് ആവശ്യപ്പെടാൻ യോഗം തീരുമാനിച്ചു

അറബിക്കടലിനോട് ചേർന്ന ഇന്ത്യൻ മഹാസമുദ്ര മേഖല യിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടതിനെത്തുടർന്ന് കേരളത്തിലെ നാല് ജില്ലകളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാവകുപ്പ് മുന്നറിയിപ്പ് നൽകി കോഴിക്കോട് മലപ്പുറം ഇടുക്കി എറണാ കുളം ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കേരള കർണ്ണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽനിന്ന് മീൻപിടുത്തക്കാർ കട ലിൽ പോകരുതെന്നും നിർദ്ദേശമുണ്ട് തെക്ക് പടിഞ്ഞാറൻ അറബിക്കടലിൽ രൂപം കൊണ്ട ന്യൂന മർദ്ദ സാഹചര്യം നേരിടാൻ സംസ്ഥാനം പൂർണ്ണ സജ്ജമാണെന്ന് മന്ത്രി ഇ ചന്ദ്രശേഖരൻ പറഞ്ഞു ജാഗ്രതാ നിർദേശം നൽകിയ ജില്ലകളിൽ ദുരന്ത നിവാരണ അതോറിറ്റി കരുതൽ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും മന്ത്രി കോഴിക്കോട് അറിയിച്ചു ബലാത്സംഗ കേസുകളിൽ കടുത്ത ശിക്ഷ നല്കണമെന്ന് ഉപ രാഷ്ട്രപതി എം വെങ്കയ്യനായിഡു അഭിപ്രായപ്പെട്ടു തെലങ്കാന യിൽ നടന്നതു പോലെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കുന്നത് നിർഭാഗ്യകരമാണെന്നും അദ്ദേഹം രാജ്യസഭയിൽ പറഞ്ഞു തെല ങ്കാനയിൽ യുവ ഡോക്ടറെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കി കൊലപ്പെടുത്തിയ സംഭവം സഭയിൽ ചർച്ച ചെയ്യുന്നതിനിടെ യാണ് ഉപരാഷ്ട്രപതിയുടെ പരാമർശം രാജ്യത്ത് ഭീതിയുടെ അന്തരീഷം നിലനിൽക്കുകയാണെന്ന വ്യവസായ പ്രമുഖൻ അരാഹൂൽ ബജാജിന്റെ പ്രസ്താവന ദേശതാൽപര്യത്തിന് എതിരാണെന്ന് കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാ രാമൻ പറഞ്ഞു സ്വന്തം തോന്നലുകൾ പ്രചരിപ്പിക്കുന്നതിനേ ക്കാൾ എല്ലായ്പ്പോഴും ഉത്തരം തേടുന്നതാണ് മികച്ച മാർഗ്ഗ മെന്നും അതേറ്റുപിടിക്കുന്നത് ദേശീയതാൽപര്യത്തെ ദോഷകര മായി ബാധിക്കുമെന്നും മന്ത്രി ട്വിറ്ററിൽ പ്രതികരിച്ചു രാജ്യത്ത് ഭീതിയുടെ അന്തരീക്ഷമുണ്ടെന്നും ഗവൺമെന്റിനെ വിമർശിക്കാൻ ജനങ്ങൾക്ക് പേടിയാണെന്നും കഴിഞ്ഞ ദിവസം മുംബൈയിലെ ഒരു അവാർഡ്ദാന ചടങ്ങിൽ രാഹുൽ ബജാജ് തുറന്നടിച്ചിരുന്നു ന അഖിലേന്ത്യാ മെഡിക്കൽ എൻട്രൻസ് പരീക്ഷയായ നീറ്റിന് മുൻകൂട്ടി അനുമതി വാങ്ങി ശിരോവസ്ത്രം ധരിക്കാമെന്ന് കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രാലയം ഉത്തരവിറക്കി ബുർഖാ ഹിജാബ് കാരാ കൃപാൺ എന്നിവ ധരിക്കുന്നതിനുള്ള വിലക്കാണ് നീക്കി യത്

വിഷയം ഏഴംഗ് ഭരണഘടനാ ബെഞ്ചിന് വിടണമെന്ന് അറ്റോർണി ജനറൽ കെ കെ വേണുഗോ പാൽ കോടതിയോട് ആവശ്യപ്പെട്ടു

ഇതുമായി ബന്ധപ്പെട്ട പൊതുതാത്പര്യ ഹർജിയിലാണ് കേന്ദ്രം നിലപാട് അറിയിച്ചത് ൃ ാ മിഷൻ ഇന്ദ്ര ധനുസിന്റെ രണ്ടാം ഘട്ടത്തിന് രാജ്യത്ത് ഇന്ന് തുടക്കം രണ്ടു പ്രയസ്സുവരെയുള്ള കുട്ടികൾക്കും ഗർഭിണി കൾക്കും എട്ട് തരം രോഗങ്ങൾക്കെതിരെ പ്രതിരോധ കുത്തിവെപ്പ് ഉറപ്പാക്കുന്നതാണ് പദ്ധതി ഡിഫ്തീരിയ വില്ലൻ ചുമ പോളിയോ ടെറ്റനസ് ക്ഷയം അഞ്ചാം പനി മെനിഞ്ചൈറ്റിസ് മഞ്ഞപ്പിത്തം എന്നീ രോഗങ്ങൾക്കെതിരെ പ്രതിരോധ കുത്തിവെപ്പാണ് പദ്ധതി യിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്

ചടങ്ങിൽ മന്ത്രി എ കെ ബാലൻ അധ്യക്ഷനായിരിക്കും തിരുവനന്തപുരം വഞ്ചിയൂർ കോടതിയിലെ വനിതാ മജിസ്ട്രേ റ്റിനെ അഭിഭാഷകർ ഭീഷണിപ്പെടുത്തിയെന്ന് ആരോപണത്തിൽ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമായി ബാർ കൌൺസിൽ അംഗ ങ്ങൾ നടത്തിയ ചർച്ച ഒത്തുതീർന്നില്ല നാളെ ബാർ അസോസി യേഷൻ അംഗങ്ങളുമായി കൌൺസിൽ ഭാരവാഹികൾ ചർച്ച നട ത്തും അതിനുശേഷം വ്യാഴാഴ്ച ചീഫ് ജസ്റ്റിസുമായും മുതിർന്ന ജഡ്ജിമാരുമായും ഒരിക്കൽ കൂടി ചർച്ച നടത്തും ഇരുചക്രവാഹനങ്ങളിൽ പിൻസീറ്റ് യാത്രക്കാർക്കും ഹെൽമറ്റ് നിർബന്ധമാക്കിയതിന്റെ ഭാഗമായി മോട്ടോർ വാഹനവകുപ്പും പൊലീസും പരിശോധന ശക്തമാക്കി

കുറ്റം ആവർത്തി ച്ചാൽ പിഴ ഇരട്ടിയാക്കും ദേശീയ സീനിയർ വനിതാ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിന് വൈകീട്ട് കണ്ണൂരിൽ തുടക്കമാകും മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡി യത്തിൽ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ ചാമ്പൃൻഷിപ്പ് ഉദ്ഘാ ടനം ചെയ്യും

പുരുഷ വിഭാഗത്തിൽ പാക്കിസ്ഥാനെയും വനിതാ വിഭാഗത്തിൽ നേപ്പാളിനെയും ഇന്ത്യ നേരിടും ശ്രീല ങ്കയെ തോൽപ്പിച്ചാണ് പുരുഷ ടീം ഫൈനലിലെത്തിയത് വനിതാ ടീം മാലദ്ധീപിനെ തോൽപ്പിച്ച് നേരത്തെതന്നെ ഫൈനലിൽ എത്തി യിരുന്നു ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ ഇന്ന് ജംഷഡ്പൂർ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ നേരിടും ജംഷഡ്പൂർ ജെ ആർ ഡി ടാറ്റാ സ്പോർട്സ് കോംപ്ലക്സിൽ രാത്രി ഏഴരയ്ക്കാണ് മത്സരം ഓൾ ഇന്ത്യ പോസ്റ്റൽ ഹോക്കി ടൂർണമെന്റിന് കൊല്ലത്ത് തുടക്കമായി കർണാടക തമിഴ്നാട് ഒഡിഷ മധ്യപ്രദേശ് പഞ്ചാബ് എന്നീ ടീമുകൾ മത്സരിക്കും വെള്ളിയാഴ്ച സമാപി ക്കും സംസ്ഥാന സ്കൂൾ കലോത്സവം കാസർകോഡ് എത്തിയ പ്പോൾ ജനകീയു ഉത്സവമായി മാറിയെന്ന് മന്ത്രി പ്രൊഫ സി രവീന്ദ്രനാഥ് പറഞ്ഞു

അടുത്ത വർഷം മുതൽ കലോത്സവം ഗ്രാമീണ ഉത്സവമായി മാറ്റുകയാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ സ്വപ്നമെന്നും പൊതുവിദ്യാഭ്യാസ യജ്ഞം എല്ലാ മേഖലയിലും ജനകീയത കൈവരിക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹ രണമാണ് കാഞ്ഞങ്ങാട്ട് കണ്ടത് എന്നും മന്ത്രി പറഞ്ഞു ഭാഗ്യക്കുറി ക്ഷേമനിധി അംഗങ്ങളായ ഭിന്നശേഷി ക്കാർക്കും പ്രായമായവർക്കും പ്രത്യേകം കലാകായിക മത്സരങ്ങൾ നടത്തുമെന്ന് മന്ത്രി ഡോ തോമസ് ഐസക് പറഞ്ഞു സംസ്ഥാന ഭാഗൃക്കുറി ക്ഷേമനിധി ബോർഡിന്റെ നേതൃത്വത്തിൽ ആലപ്പുഴ ജില്ലയിലെ ക്ഷേമനിധി തൊഴിലാളികൾക്കും മക്കൾക്കുമായി സംഘടിപ്പിച്ച കലാകായിക മേള ഉദ്ഘാടനം ചെയ്യുക യായിരുന്നു മന്ത്രി സുൽത്താൻ ബത്തേരി സർവ്വജന സ്കൂളിലെ യു പി വിഭാഗം ക്ലാസ്സുകൾ രാവിലെ പുനരാരംഭിച്ചു സ്കൂളില്ല നവീകരിച്ച സുവർണ ജൂബിലി ഓഡിറ്റോറിയത്തിലാണ് താത്കാലികമായി ക്ലാസ്സുകൾ തുടങ്ങിയത് രാവിലെ രക്ഷിതാക്കളുടെ നേതൃത്വത്തിൽ സ്കൂൾ അസംബ്ലി ചേർന്ന ശേഷമാണ് ക്ലാസുകൾ ആരംഭിച്ചത് അന്തവിശ്വാസത്തിന്റെ പേരിൽ വർദ്ധിച്ചു വരുന്ന ദുരന്തങ്ങൾ ഭരണകൂടം കാണാതെ പോകരുതെന്ന് കോഴിക്കോട് സമാപിച്ച കെ എൻ എം ഐഡിയൽ ഇസ്താഹി സമിറ്റ് ആവശ്യപ്പെട്ടു ആത്മീയ തട്ടിപ്പുകാരിൽ നിന്ന് വിശ്വാസി സമൂഹത്തെയും സാംസ്കാരിക കേരളത്തെയും രക്ഷിക്കണമെന്നും യോഗം നിർദേ ശിച്ചു

ചേർത്തല പോളിടെക്നിക്കിൽ ചലച്ചിത്ര താരങ്ങളായ മെറിൻ ഫിലിപ്പ് അഖില മോഹൻ സിത്താര വിജയൻ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്യും

ഡി എഫ് കണ്ണൂർ ജില്ലാ കമ്മറ്റിയുടെയും നിയോജക മണ്ഡലം ചെയർമാൻമാരുടെയും കൺവീനർമാരുടെയും സംയുക്ത യോഗം രാവിലെ ഡി

ഓഫീസിൽ ആരംഭിച്ചു

എഫ് ജില്ലാ കമ്മറ്റി ചെയർമാൻ പ്രൊഫ

മുസ്തഫയുടെ നേതൃത്യത്തിലാണ് യോഗം നടക്കുന്നത്

ബി ഐ എ ടി എമ്മിൽ ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് മോഷണശ്ര മം പുലർച്ചെ രണ്ടരയോടെയാണ് മോഷണ ശ്രമം നടന്നത് മോഷ്ടാക്കൾ വന്നതെന്ന് സംശയിക്കുന്നുകാർ സമീപത്തുനിന്ന് കണ്ടെത്തിയിട്ടുണ്ട് കണ്ണൂർ കൂത്തുപറമ്പിനടുത്ത് ആറാം മൈലിൽ സ്വകാര്യ ബസ്സിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ഓട്ടോ ടാക്സി ഡ്രൈവർ മരിച്ചു കതിരൂർ പുല്ലോട്ടെ കുളവട്ടത്ത് ഹൌസിൽ പി സജിത്താണ് മരിച്ചത് ഇന്നലെ വൈകുന്നേര മായിരുന്ന് അപകടം കുട്ടികളുടെ ദേശീയ ശാസ്ത്ര കോൺഗ്രസ് നാളെ തിരുവനന്തപുരം പാലോട് നെഹ്റു ട്രോപിക്കൽ ബൊട്ടാ ണിക്കൽ ഗാർഡനിൽ ആരംഭിക്കും മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്യും